എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണെന്ന് പ്രധാന്ടമന്ത്രി നരേന്ദ്രമോദി

അയോധ്യ തർക്ക ഭൂമിയെ സംബന്ധിച്ച സുപ്രീം കോടതി വിധിയിൽ പുനപരിശോധന ഹർജി നൽകുമെന്ന് ഓൾ ഇന്ത്യ മുസ്തീം വ്യക്തി നിയമ ബോർഡ്

ശ്രീലങ്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഗോദബായ രജപക്സെയ്ക്ക് വിജയം ഗോദബായക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിനന്ദനം

കോർപ്പറേറ്റ് നികുതി കുറച്ചത് ഇ സിഗരറ്റ് നിരോധിച്ചത് തുടങ്ങിയ ഓർഡിനൻസുകൾക്ക് പകരമുള്ള ബില്ലുകളുൾ ഉൾപ്പെടെയുള്ളവ ഉശതൃകാല സമ്മേളനത്തിൽ പാസാക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് തീരുമാക്ടിച്ചിരിക്കുന്നത്

ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവരുടെ അവകാശ സംരക്ഷണത്തിനുള്ള ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ബിൽ മെഡിക്കൽ കമ്മീഷൻ ബിൽ ഗർഭപാത്രം സാമ്പത്തിക നേട്ടത്തിനായി ഉപയോഗിക്കുന്നത് തടയുന്ന സറോഗസ്സി റെഗുലേഷൻ ബിൽ തുടങ്ങിയവയാണ് ഗവൺമെന്റ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സുപ്രധാനമായ മറ്റ് ബില്ലുകൾ

എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്താൻ ഗവൺമെന്റ് തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി കെ

ഈ പ്രാവശ്യത്തെ പാർലമെന്റ് സമ്മേളനത്തിന് പ്രത്യേകതകൾ ഏറെയിന്റ്

ഇതിന്റെ ഭാഗമായി പ്രത്യേക പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു

തടങ്കലിൽ കഴിയുന്ന ലോക്സഭ അംഗം ഫറൂഖ് അബ്ദുള്ളയെ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ഗുലാംനബി ആസാദ് ആവശ്യപ്പെട്ടു സാമ്പത്തിക മാന്ദ്യം തൊഴിൽ ഇല്ലായ്മ കാർഷിക പ്രശ്നം മുതലായവ ഈ സമ്മേളന കാലയളവിൽ സഭ ചർച്ച ചെയ്യണമെന്ന് കോൺഗ്രസ് നേതാവ് അതിർ രഞ്ചൻ ചൌധരി ആവശ്യപ്പെട്ടു

ഈ സമ്മേളനത്തിൽ പരിസ്ഥിതി മലിനീകരണം സാമ്പത്തികം കൃഷി സ്ത്രീകളുടെ അവകാശം യുവാക്കളുടെയും അധകൃത വിഭാഗങ്ങളുടെയും അവകാശം മുതലായ വിഷയങ്ങളിൽ നിയമ നിർമാണം നടത്താനുണ്ടെന്നും അതിനായി എല്ലാ രാഷ്ട്രീയ കക്ഷികളും സഹകരിക്കണമെന്നും പ്രധാനമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞ സമ്മേളനം സുഗമമായി നടത്തിയ രണ്ട് സഭാ അധ്യക്ഷന്മാരേയും പ്രധാന മന്ത്രി അഭിനന്ദിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാട്ടണി

രണ്ട് പേർക്ക് പരിക്കേറ്റു മേഖലയിലൂടെ നീങ്ങുകയായിരുന്ന സൈനിക വാഹനത്തിനുനേരെ ആക്രമണം ഉണ്ടാകുകയായിരുന്നുവെന്ന് പ്രതിരോധ വക്താവ് അറിയിച്ചു

കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല

സി

നേതാവ് ശരത്പവാറും കോൺഗ്രസ് അധ്യക്ഷ സോണിയ ഗാന്ധിയുമായി നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച നാളത്തേയ്ക്ക് മാറ്റിവച്ചു

പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ശിവസേനയുമായി സഹകരിക്കാനാണ് കോൺഗ്രസിന്റെയും എൻ സി

മുഖ്യമന്ത്രിപദം പങ്കിടുന്നതിനെ ചൊല്പിയുള്ള ശിവസേന ബി ജെ

ശരിക്കുവേണ്ടി പോരാടുക എന്നത് അവകാശമാണ്ടെന്നും ഭൂരിഭാഗം മുസ്ലീങ്ങളും വിധി പുനഃപരിശോധിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ടെന്നും മുസ്ലീം വ്യക്തിനിയമ ബോർഡ് സെക്രട്ടറി സഫ്രയാബ് ജിലാനി പറഞ്ഞു

പള്ളിക്കായി മറ്റൊരു ഭൂമിയും സ്വീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലീം സമുദായം അഭിമുഖീകരിക്കുന്ന പല വിഷയങ്ങളും സുപ്രീംകോടതി അവഗണിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു വിധി വന്ന ദിവസം തന്നെ വിധിയിൽ തൃപ്തനല്ലെന്ന് ജിലാനി അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ സുന്നി വഖഫ് ബോർഡ് പുനഃപരിശോധനാ ഹർജി നൽകില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്

രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനായി ഇന്നലെയാണ് നട തുറന്നത് ക്ഷേത്ര മുഖൃതന്ത്രി ഇന്ന് രാവിലെ ശ്രീകോവിൽ തുറന്നപ്പോൾ ആയിരങ്ങൾ അയ്യപ്പ ദർശനം നടത്തി

ശബരിമലയിലേയ്ക്ക് വരുന്ന യുവതികൾക്ക് പൊലീസ് സംരക്ഷണം നൽകില്ലെന്ന് കേരള ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്

ഇന്ത്യയും യു എസ്സും തെമ്മിൽ വളർന്നുവരുന്ന നല്ല ബന്ധത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച രാജ്യരക്ഷാ മന്ത്രി പ്രതിരോധം സുരക്ഷ സാമ്പത്തികം ഉൌർജ്ജം ഭീകരവിരുദ്ധ പ്രവർത്തനം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇരുരാജ്യങ്ങളും പരസ്പര സഹകരണം വർദ്ധിപ്പിച്ചതായി അഭിപ്രായപ്പെട്ടു ഇൻഡോ പെസഫിക് മേഖലകളിൽ തുറന്ന സമിപനത്തിന് ഇന്ത്യയും അമേരിക്കയും പ്രതിജ്ഞാബദ്ധമെന്ന് ശ്രീ സിംഗ് പറഞ്ഞു ഇൻഡോ പെസഫിക് മേഖലയിലെ ഇന്തൃയുടെ സഹകരണത്തിന്റെ കേന്ദ്രം ആസിയാനാണെന്നും അദ്ദേഹം പ്രത്യേകം ഓർമ്മിപ്പിച്ചു

സമുദ്ര സുരക്ഷയ്ക്കായി ഇരുരാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അറിയിച്ചു

മുൻ പ്രസിഡന്റ് മഹീന്ദ്ര രജപക്സെയുടെ സഹോദരനാണ് അദ്ദേഹം

ശ്രീലങ്കയിൽ എൽ

ഇ യുടെ പോരാട്ടം തുടർന്നു കൊണ്ട്ടിരുന്ന അവസാന നാളുകളിൽ പ്രതിരോധ സെക്രട്ടറിയായിരുന്നു ഗോദ്ദബ്ലായ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്ന് പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ നേതൃത്വം നൽകുന്ന യുണൈറ്റെഡ് നാഷണൽ പാർട്ടിയുടെ ഉപനേതാവ് സ്ഥാനം പ്രേമദാസ രാജിവച്ചു കായികമന്ത്രി ഹരിൻ ഫെർണാണ്ടോ ഉൾപ്പെടെയുള്ള ചില മന്ത്രിമാരും രാജി നൽകിയിട്ടുണ്ട് നിലവിലെ ഗവൺമെന്റിന്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി വിക്രമസിംഗെ പ്രത്യേക മന്ത്രിസഭ യോഗം വിളിച്ചിട്ടുണ്ട്

ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സൌഹാർദ പൂർണമായ ബന്ധത്തിനും മേഖലയിലെ സുരക്ഷിതത്വത്തിനുമായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള തന്റെ താല്പര്യം ശ്രീ

രാജ്ഭവനിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ഗവർണർ ദ്രൌപദി മുർമിയാണ് സത്യവാചകം ചൊല്ലി കൊടുത്തത് മുഖ്യമന്ത്രി രഘുബീർദാസ് ഹൈക്കോടതി ജഡ്ജിമാർ മറ്റ് പ്രമുഖ വൃക്തികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു

സുപ്രീ കോടതി ജഡ്ജിയായി നിയമിതനായ മുൻ ചീഫ് ജസ്റ്റീസ് അനിരുദ്ധ് ബോസ് സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നുണ്ടായ ഒഴിവിലേയ്ക്കാണ് ജസ്റ്റിസ് രവി രഞ്ജൻ നിയമിതനായത്

സംയുക്ത സൈനിക്കൃഅഭ്യാസത്തിനെതിരെ ഉത്തരകൊറിയ രംഗത്ത് വന്നതിന് തൊട്ടുപ്പിന്നാലെയാണ് നടപടി